പെസഹ വ്യാഴം

ജില്ലയിൽ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് കളക്റ്റർ് ഈ കാര്യം വ്യക്തമാക്കിയത് സ്വയംഭരണ സ്ഥാപനങ്ങൾ സമാന്തരമായി നടത്തുന്ന ഭക്ഷണപ്പൊതി വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉടൻ നൽകണമെന്നും ജില്ലകളക്റ്റർ പറഞ്ഞു

കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിനു കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഏർപ്പെടുത്തിയ ഈ സംവിധാനം വ്യാജ വാർത്തകളുടെ നിജസ്ഥിതി അറിയാൻ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്

എന്നാൽ ഇറ്റലിയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്

ജർമനിയിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും മരണസംഖ്യ കുറഞ്ഞ നിരക്കിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ടുണ്ട്